സ്കൂൾ വിദ്യാർത്ഥി കൾ സൈനികർ ആത്മീയ നേതാക്കൾ കർഷകപ്രതിനിധികൾ മാധ്യമപ്ര വർത്തകർ എന്നിവരടക്കം സമൂഹത്തിന്റെ നാനാമേഖലയിലെയും ആളുകളെ സംവാദപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജയന്തി ദിനമായ ഒക്ടോ ബർ രണ്ടുവരെയാണ് പ്രചാരണ പരിപാടി മഹാത്മാഗാന്ധിക്ക് പ്രണാമമർപ്പി ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗ്ഗമാണ് ഈ യത്നത്തിൽ പങ്കാളികളാകു ന്നതിലൂടെ ലഭ്യമാകുന്നതെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറ ഇതുവഴി ശുചിത്വഭാരത സൃഷ്ടിയിൽ പങ്കാളികളാവാൻ അദ്ദേഹം ഞ്ഞു ജനങ്ങളെ ആഹ്വാനം ചെയ്തു ശുചിത്വ ഇന്ത്യയെന്ന മഹാത്മജിയുടെ ലക്ഷ്യം പ്രാവർത്തികമാക്കുകയെന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കാനാണ് പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത് സ്ഥ ഭാരത പരിപാടിയുടെ നാലാം വാർഷികം കൂടിയാണ് ഒക്ടോബർ രണ്ടിന് ആഘോഷിക്കുന്നത്

ബാലൻ പറഞ്ഞു പാലക്കാട് ധനസമാഹരണ യജ്ഞം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇന്ന് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചു ധനസമാഹരണം നടക്കും ഇന്നലെ ലോക ബാങ്ക് എ ഡി ബി സംഘം ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു

ജോസ് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം ഇന്നാണ്

പ്രളയക്കെടുതിയിൽ പത്തനംതിട്ട ജില്ലയിലെ നാശനഷ്ടങ്ങൾ വില യിരുത്താൻ ലോകബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് പ്രതിനിധികൾ ഇന്ന് സന്ദർശനം നടത്തും രാവിലെ ജില്ലാ കലക്ടർ പി ബി നൂഹുമായും ജില്ലാ തല ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയ ശേഷമായിരിക്കും സന്ദർശനം

പ്രളയ ദുരിതാശ്ചാസത്തിന് കേന്ദ്രം അനുവദിച്ച അരി സംസ്ഥാനം ഏറ്റെടു ക്കുന്നില്ലെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു ് ് ് ് ് ് ് പ്രളയബാധിത മേഖലയിൽ ആയിരക്കണക്കിനാളുകളെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളെ ഇന്ന് രാവിലെ തിരുവനന്തപുരം വേളിയിൽ ആയുഷ് വകുപ്പ് ആദരിക്കും മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കായി ആയുഷ് മെഗാ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട് ് ് ് ് ് ് ് ് ദുരന്ത നിവാരണ സേനയിലും രക്ഷാ സേനകളിലും മത്സ്യത്തൊ ഴിലാളികൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന് എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു തിരൂരിൽ കേരള സ്റ്റേറ്റ് മത്സ്യത്തൊഴിലാളി ഫെഡറ്റേഷൻ സംസ്ഥാന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഗഡു ഒക്ടോബർ ഒന്നുമുതൽ പണ മായി നൽകും ഇപ്പോഴത്തെ പി എഫ് പലിശ നിരക്കിൽ പലിശ സഹിത മാണ് തുക നൽകുകയെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് തിരുവനന്ത പുരത്ത് അറിയിച്ചു വിരമിച്ച ജീവനക്കാരുടെ പെൻഷനടക്കം ആനുകൂല്യ ങ്ങളുടെ കുടിശ്ശിക നാലാംഗഡുവും പലിശ സഹിതം നൽകും

ജയരാജൻ പറഞ്ഞു സുപ്രീം കോടതി വിധിയെ ഗവൺമെന്റ് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളത്തിൽ അറിയിച്ചു

മായ മാറ്റങ്ങൾ വരുത്താതെയാണ് സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ച ത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിമാർ സ്ഥാനങ്ങളിൽ തുടരും ഇതിന് പുറമെ ജെ

വൈസ് പ്രസിഡന്റായി ചേറ്റൂർ ബാലകൃഷ്ണ നെയും ഉൾപ്പെടുത്തി

ചിത്രം പ്രചരിപ്പിച്ച മിഷണറീസ് ഓഫ് ജീസസ് അധികൃതർക്കെതിരെ പൊലീസ് കേസെടുത്തു കന്യാസ്ത്രീയുടെ സഹോദരന്റെ പരാതിയിൽ കുറവിലങ്ങാട് പൊലീസാണ് നടപടിയെടുത്തത് മിഷണറീസ് ഓഫ് ജീസ സിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താ കുറിപ്പിനൊപ്പമായിരുന്നു ചിത്രം നൽകിയത് അതിനിടെ അന്വേഷണ ഉദ്യോ ഗസ്ഥന് മുന്നിൽ ബുധനാഴ്ച ഹാജരാകണമെന്ന നോട്ടീസ് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കൈപ്പറ്റി ബുധനാഴ്ച രാവിലെ പൃത്തിന് ഹാജരാക ണമെന്ന ഇ മെയിൽ സന്ദേശം കൈപ്പറ്റിയതായി ബിഷപ്പിന്റെ ഒപ്പോടെ മറു പടി ലഭിച്ചതായി കോട്ടയം ജില്ലാ പൊലീസ് മേധാവ്വി ഹരിശങ്കർ വെളിപ്പെട്ട ടുത്തി

രാട്ടത്തിനിറങ്ങും മാലദ്വീപാണ് ഫൈന്ലിൽ ഇന്ത്യയുടെ എതിരാളി നില വിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ തുടർച്ചയായ മൂന്നാം കിരീടമാണ് ലക്ഷ്യമിടു ന്നത് ധാക്ക ബംഗബന്ധു സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് ആറരയ്ക്കാണ് മത്സരം

അബു ദാബിയിലും ദുബൈയിലുമാണ് മത്സരം

മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ പവർ ലിഫ്റ്റിം ഗ് ഇന്ത്യ ജനറൽ സെക്രട്ടറി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്യും

തിങ്കളാഴ്ച സമാപി ക്കും

വയസ്സായിരുന്നു

സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് വേലനിലം സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും ് കൂട്ടനാടിന്റെ സമഗ്ര വികസനത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാ ക്കാൻ കോർ കമ്മിറ്റി രൂപീകരിച്ചതായി മന്ത്രി വി

കാർഷികോല്പാദന കമ്മീഷണർ ദേവേന്ദ്രകുമാർ സിൻഹ ചെയർമാ നായ കമ്മിറ്റിയിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു കൃഷിവകുപ്പ് ഡയറക്ടർ എന്നിവർ ഉൾപ്പെടെ ഏഴുപേർ അംഗങ്ങളാണ്

ങ്ങളെ മൂന്നുവർഷം കൊണ്ട് സ്ഥയം പുര്യാപ്തമാക്കാൻ ലക്ഷ്യമിടുന്ന പുനർജ്ജനി പദ്ധതിയുടെ ആദ്യഘട്ടം നട്പ്പുസാമ്പത്തിക വർഷം തുടങ്ങും ഇതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ മൂന്ന് മേഖലകളിൽ സംഘടിപ്പി ക്കുന്ന ശില്പശാലയിൽ ആദ്യത്തേത് ഇന്ന് എറണാകുളത്തും രണ്ടാമത്തേത് മറ്റുന്നാൾ കോഴിക്കോട്ടും നടത്തും

വയനാട്ടിലെ പൈതൃക സ്മാരകമായ എടയ്ക്കൽ ഗുഹയിലേക്ക് സഞ്ചാരികൾക്ക് ഇന്നുമുതൽ നിയന്ത്രണ വിധേയമായി പ്രവേശനം നൽകും ഒന്നാം ഗുഹയിലൂടെ പ്രവേശനം ഒഴിവാക്കി ബദൽ പാത വഴി രണ്ടാം ഗുഹ യിലേക്കാണ് പ്രവേശനം ഒന്നാം ഗുഹയുടെ പ്രവേശന കവാടത്തിൽ പാറ വീണതിനെ തുടർന്നാണ് സന്ദർശകർക്ക് പുരാവസ്തു വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയത് ് ഇടുക്കി പൊന്മുടി ഡാമിന്റെ ഒരു ഷട്ടർ ഇന്ന് തുറക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

അഞ്ചിന് നട തുറക്കും

മറ്റന്നാൾ മുതൽ പതിവു പൂജകൾക്കും വിശേഷാൽ പൂജകൾക്കും തുടക്ക മാകും

പമ്പാ നിലയ്ക്കൽ പാതയിൽ തീർത്ഥാടക വാഹനങ്ങൾക്ക് കർശന നിയ ന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും നിലയ്ക്കൽ വരെ മാത്രമേ അനുവദിക്കൂ തുടർന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ തീർത്ഥാ ടകർ ഉപയോഗിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു പമ്പ ത്രിവേണിയുടെ പുനരുദ്ധാരണം കൂടുതൽ വേഗത്തിലാ ക്കാൻ ഗവൺമെന്റും ദേവസം ബോർഡും നടപടിയെടുക്കണമെന്ന് സുരേഷ് ഗോപി എം

പമ്പയിലെ പ്രിളയനാശം വിലയിരുത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം

രാമചന്ദ്രൻ ഇടുക്കി ജില്ലയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശി ച്ചു ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഒമ്പത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്

പ്രളയ ദുരന്ത ബാധിതരുടെ ദുരിതാശ്ചാസ സഹായത്തിൽ നിന്ന് ബാങ്കുകൾ ചാർജ്ജ് ഈടാക്കരുതെന്ന് ജില്ലാ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ നിർദ്ദേശം നൽകി യതായി ജോയ്സ് ജോർജ്ജ് എം പി അറിയിച്ചു

കേരളത്തിന്റെ പുനർനിർമ്മിതി എന്ന വിഷയത്തിൽ തിരുവനന്ത പുരം ദൂരദർശൻ കേന്ദ്രം ഇന്ന് ഇടുക്കി ജില്ലയിൽ പൊതുജനസമ്പർക്ക പരി പാടി സംഘടിപ്പിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ചെറുതോണിയിലാണ് പരിപാടി